ബീഹാറിൽ എൻ ഡി എ യുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

എഫ് ഉദ്യോഗസ്ഥരും രണ്ട് പോലീസുകാർക്കും വീരമൃത്യു

ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള സംഝോതാ എക്സ്പ്രസ്സ് ട്രെയിൻ സർവ്വീസ് ഇന്ന് പുനരാംഭിക്കും

സ്വിസ് താരം റോജർ ഫെഡററിന് നൂറാമത് എ

സിംഗിൾസ് ടൈറ്റിൽ കിരീടം

പാറ്റ്നയിൽ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന സങ്കൽപ്പ് റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും നേതാവും ബീഹാർ മുഖ്യമന്ത്രിയ്ക്കുമായ് നിതിഷ് കുമാർ കേന്ദ്രമന്ത്രി റാം വിലാസ് പ്ടാ്സ്ക്യൻ് തുടങ്ങിയ എൻ

മുഷിഗെഞ്ചിൽ ഇന്ത്യോ റഷ്യ ഹൈടെക് റൈഫിൾ ഗൺസിന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

ദേശീയ സുരക്ഷയ്ക്ക് കരുത്ത് പകരാൻ മേക്ക് ഇന്ത്യ പദ്ധതിക്ക് കഴിയുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണിത്

നമ്മുടെ സൈനികരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത്തരം റൈഫിൾസിന് സാധിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു

ഇതോടൊപ്പം വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും റോഡ് നിർമ്മാണം ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ ബസ്സ് സ്റ്റേഷൻ സ്കൂളുകൾ വൈദ്യുത്പി സ്സബ്സ്റ്റേഷൻ എന്നിവയുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തൃറക്കല്ലിടും

കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരിൽ നിന്നും ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ഹന്ദ് വാര മേഖലയിൽ തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെതുടർന്ന് സുരക്ഷാസേന വ്യാഴാഴ്ച രാത്രി മുതലാണ് തെരച്ചിൽ ആരംഭിച്ചത് കരസേനയ്ക്കൊപ്പം സി ആർ പി എഫും പ്രത്യേക പോലീസ് സേനയും ഇന്നലെ മുതൽ പ്രദേശത്ത് സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു

ന ദിവസമായി തുടരുന്ന വെടിവയ്പ് അവസാനിച്ചെങ്കിലും പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്

കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളിൽ മൂന്ന്റ്മുത്തെ വലിയ സ്റ്റാർട്ടപ്പ് രാജ്യമായി ഇന്ത്യ മാറി

അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭാവി സാങ്കേതികവിദ്യയെ അ ിയാൻ ആകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടുലക്ഷം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ സംഘടിപ്പിച്ചത്

ന്യൂഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം മീഡിയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ സൈനികന്റെ ഓരോ തുള്ളി രക്തവും വിലപ്പെട്ടതാണ് റാഫേൽയുദ്ധ വിമാനങ്ങളുടെ ആവശ്യമുണ്ടെന്ന് രാജ്യം ഇന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതിഗതികൾ വൃത്യസ്തമായിരുന്നേനെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇന്ത്യൻ പ്ര്യോമ്സേനാ വിങ് കമാൻഡർ അഭിനന്ദനെ പാകിസ്ഥാൻ പ്ലിട്ട്യച്ചതിന് പിന്നാലെയാണ് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഝോതാ എക്സ്പ്രിസ് ട്രെയിന്റെ സർവ്വീസ് നിർത്തിവച്ചത് ഡൽഹിയിൽ നിന്നുള്ള സർവ്വീസ് ഇന്ന് ആരംഭിക്കും പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നുള്ള സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും

ഹക്കിംപെട്ടിലെയും സുളൂരിലെയും വ്യോമസേനാത്താവളങ്ങളിൽ തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് കോയമ്പത്തൂരിലെ ഇഷ യോഗാ കേന്ദ്രവും രാഷ്ട്രപതി സന്ദർശിക്കും

ഖത്തറുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് തത്പര്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഷെയ്ക് തമീം ്ര നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

അബുദാബിയിൽ ചേർന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കവെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

സമ്മേളനത്തിന്റെ അമ്പതാം വാർഷികത്തിൽ പ്രത്യേക ക്ഷണിതാവായാണ് ഇന്ത്യ സംബന്ധിക്കുന്നത്

ഹെൽപ്പിംഗ് ഹാന്റ് ഫോർ റിലീഫ് ആന്റ് ഡെവലപ്മെന്റ് എന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സംഘടനയെപ്പറ്റിയാണ് അന്വേഷണം നടത്തുക റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ജിംബാംഗ്സ് ആണ് നിയമനിർമ്മാ്ണത്തിനായി ബിൽ കൊണ്ടുവന്നത് പാകിസ്ഥാനിൽ ദ് ത്തിരോധിത സംഘടനയായ ലഷ്ഖർ ഇ തൊയ്ബ യുമാറ്റി ബന്ധമുള്ള ഫലാ ഇ ഇൻസാനിയത്തുമയി ചേർന്നിുണ്ട് ഈ അമേരിക്കൻ സംഘടന പ്രവർത്തിക്കുന്നത് ജമാ അത് ഇ ഇസ്ലാമി പോലെ തീവ്ര സ്വഭാവമുള്ള സംഘട്ടന്റിയുമായി സഹകരിച്ച് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ അമേരിക്കൻ ഏജൻസികളോടും പ്രവർത്തനം നിറുത്തിവയ്ക്കാനും ബില്ലിൽ ശുപാർശയുണ്ട്

അർധ സെഞ്ചുറിയുമായി എം

ധോണിയും കേദാർ ജാദവും പുറത്താകാതെനിന്നു ജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര യിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി കേദാർ ജാദവാണ് കളിയിലെതാരം ഓസീസ് ഉയർത്തിയ ചെറിയ സ്കോറിനെതിരെ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്കും തുടക്കത്തിൽ തകർച്ച നേരിട്ടു രോഹിത് ശർമ വിരാട് കോഹ്ലി സഖ്യം പുറത്തായതോടെ സെ ഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത് ജാദവ് ധോണി സഖ്യമാണ് ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത്

പൂനെയിൽ മുംബൈ സിറ്റിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് പൂനെ തോൽപ്പിച്ചത്

കമാനത്തിന്റെയും ഇതര സൌകര്യങ്ങളുടെയും ഉദ്ഘാടനം എൻ

പ്രേമചന്ദ്രൻ എം

ഉച്ചയ്ക്കുശേഷം ഒന്നേമുക്കാലിന് രണ്ടാം പ്രവേശനകവാടത്തിന് സമീപമാണ് ഉദ്ഘാടന ചടങ്ങ്

രണ്ടാം പ്രവേശനകവാടം തുറന്നു നൽകുന്നതോടെ കൊട്ടാരക്കര റൂട്ടിൽ നിന്നുള്ളവർക്ക് അനായാസം സ്റ്റേഷനിൽ എത്താം